സിഎജി റിപ്പോർട്ട് മുഖ്യമന്ത്രിയെയാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ത ആലപ്പുഴ ജില്ലയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ആളെ ഡിസ്ചാർജ്ജ് ചെയ്തു

ന്യൂഡൽഹിയിൽ ബിംസ് സ്റ്റിക് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നേരിടുന്നത് സംബന്ധിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് കള്ളക്കടത്ത് നേരിടുന്നതിന് കേന്ദ്രം പൂർണ്ണ പ്രതിബദ്ധമാണെന്നും മയക്കുമരുന്ന് മുക്ത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം സഫലമാവുമെന്നും അമിത് ഷാ പറഞ്ഞു

രാര ആരോഗ്യബോധവൽക്കരണത്തിന് രാജ്യത്തെ എല്ലാ സ്കൂളുക ളിലും രണ്ട് അധ്യാപകർ ആരോഗ്യക്ഷേമ അംബാസിഡർമാരായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൻ നിശാങ്ക് പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ സ്കൂളുകളിൽ ആരോഗ്യക്ഷേമ അംബാസിഡർമാരെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ രാജ്യത്തെ ഇരുന്നൂറ് ജില്ലകളിൽ പദ്ധതി തുടങ്ങും രുഭ ഡിജിപിക്കെതിരായ സിഎജി റിപ്പോർട്ടിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും പറയാനുള്ളത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഡിജിപിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രുഭ ഡിജിപി ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച

ദേര സിഎജി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ കുറിച്ച് പ്രതികരിക്കാനി ല്ലെന്ന് ഡിജിപി പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികരണം ഉചിതമല്ലെന്നും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പത്രക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രുര ഡിജിപി ലോക്നാഥ് ബെഹ്റക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്ത് നൽകി സിഎജി കണ്ടെത്തലുകളിൽ സിബിഐ അന്വേഷണം വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു ഗുരുതരമായ നിരവധി ക്രമക്കേടുകളും ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് സിഎജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പൊലീസിന്റെ നവീകരണ ഫണ്ടുപയോഗിച്ച് വിഐപി വിവിഐപി സുരക്ഷക്കായി വാഹനങ്ങൾ വാങ്ങിയത് എല്ലാ മാർഗ്ഗരേഖകളും കാറ്റിൽ പറത്തിയാണെന്ന് കത്തിൽ പറഞ്ഞു റൈഫിളുകൾ നഷ്ടപ്പെട്ട സംഭവം ദേശസുരക്ഷയെ ബാധിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഡിജിപി ലോക്നാഥ് ബെഹ്റയെ അടിയന്തരമായി സ്ഥാനത്തുനിന്നും നീക്കം ചെയ്ത് അന്വേഷണം എൻഐഎക്ക് കൈമാറണമെന്നും അന്വേഷണം അനിവാര്യമാ ണെന്ന വസ്തുതകൾ കണക്കിലെടുത്ത് മുഖ്യമന്ത്രി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ ആവശ്യപ്പെട്ടു ദേര ഡിജിപിക്കും പൊലീസിനുമെതിരായ സിഎജി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ശരിയ്ക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തരവകുപ്പ് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി യെയാണെന്ന് കേന്ദ്രസഹമന്ത്രി വി

പൊലീസിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കാണാതായ സംഭവം ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാണാതായ തോക്കുകളും വെടിയുണ്ടകളും തീവ്രവാദ സംഘടനകൾക്കാണോ കൈമാറിയതെന്ന് കണ്ടെത്തണമെന്നും വി

മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിട്ടാകാം ബാക്കി കാര്യമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു രുമ ഡിജിപി ലോക്നാഥ്ബെഹ്റക്കെതിരായി സിഎജി റിപ്പോർട്ടിൽ പറയുന്നത് ആരോപണമോ ക്രമക്കേടോ ആയി കാണാനാവില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

രുദ ആലപ്പുഴ ജില്ലയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നയാളെ ഡിസ്ചാർജ് ചെയ്തു പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെന്ന് പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചതിനെ തുടർന്നാണിത്

ദേര ക്രിമിനൽ കേസിൽ പ്രതികളായവർ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ ക്രിമിനൽ പശ്ചാത്തല വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന വിധി കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു

വിധി നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി രുമ നിർഭയ കേസിലെ നാലു പ്രതികളുടെ വധശിക്ഷ വെവ്വേറെ നടപ്പാക്കണമെന്ന കേന്ദ്രഗവൺമെന്റിന്റെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി മറുപടി ഫയൽ ചെയ്യാൻ പ്രതികളുടെ അഭിഭാഷകരോട് ജസ്റ്റിസ്മാരായ ആർ ഭാനുമതി അശോക്ഭൂഷൺ എ എസ് ബൊപ്പണ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു പ്രതി പവൻകുമാർ ഗുപ്തക്കുവേണ്ടി കോടതിയിൽ ഹാജരാവാൻ മുതിർന്ന അഭിഭാഷകനായ അഞ്ജന പ്രകാശിനെ കോടതി അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചു രുദ അതേസമയം ഡൽഹി നിർഭയ കേസിൽ പുതിയ മരണവാറണ്ട് പുറപ്പെടുവിക്കണമെന്ന ഹർജിയിൽ പട്ട്യാല ഹൌസ്കോടതി ഇന്ന് വിധി പറയും

ഡി എഫ് നൽകിയ അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും കോടതി ഉത്തരവിട്ടാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഇന്നും നാളെയും കൂടി അവസരം ഉണ്ടാകും കരട് വോട്ടർ പട്ടിക സംബന്ധമായ ആക്ഷേപങ്ങളും അപേക്ഷകളും നൽകേണ്ട അവസാന തീയതിയും നാളെയാണ് രുമ ഇന്ന് ലോക റേഡിയോ ദിനം

റേഡിയോയും വൈവിധ്യങ്ങളും എന്നതാണ് ഈ വർഷത്തെ റേഡിയോ ദിന സന്ദേശം റേഡിയോ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നുവെന്നും മാധ്യമ രംഗത്ത് അതിവേഗ വികാസം നടക്കുന്ന ഇക്കാലത്തും യഥാർത്ഥവും സത്യസന്ധവുമായ വാർത്തകളും വിവരങ്ങളും നൽകുന്നതിൽ റേഡിയോ പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് റേഡിയോ ദിന സന്ദേശത്തിൽ പറഞ്ഞു

രുമ തീരദേശ മേഖലയിൽ കായിക രംഗത്ത് പുത്തനുണർവ് സൃഷ്ടിക്കുന്നതിനും തീരദേശ വിനോദ സഞ്ചാര മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും കായികവകുപ്പ് നടപ്പാക്കുന്ന ബീച്ച് ഗെയിംസിന്റെ ഭാഗമായുള്ള വടം വലി മത്സരങ്ങൾ ഇന്ന് കോഴിക്കോട് സമാപിക്കും ഇന്ന് നടക്കുന്ന ഫൈനലിൽ മത്സ്യതൊഴിലാളി വിഭാഗത്തിൽ തൃശൂർ കോഴിക്കോടിനെ നേരിടും

രുര മത്സ്യബന്ധന ബോട്ടുകളിൽ എൽഎൻജി ഇന്ധനമായി ഉപയോഗിക്കുന്ന കാര്യം ഷിപ്പിംഗ് കോർപ്പറേഷനും എൽഎൻജി അധികൃതരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി മേഴ്സികുട്ടിഅമ്മ പറഞ്ഞു

കേസിൽ ഒരു തവണ ഹാജരായി മൊഴി നൽകിയതാണെന്നും മുൻകൂർജാമ്യം വേണ്ടെന്നും ഇക്കാര്യത്തിൽ ആശങ്കയില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രുദ തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് വൈകി ഓടുന്നതിനാൽ തൃശൂരിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് റെയിൽവെ അറിയിച്ചു

വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും

ഇതു സംബന്ധിച്ച് ഭക്ഷ്യ വകുപ്പിന്റെ ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടു രണ്ടു ദിവസത്തിനകം ഉത്തരവിറങ്ങും നികുതി ഉൾപ്പെടെ എട്ടു രൂപയ്ക്ക് ചില്ലറ വില്പനക്കാർക്ക് ലഭിക്കുന്ന ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിന് ഇരുപതും അതിൽ കൂടുതലുമാണ് ഈടാക്കുന്നത് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ വില നിയന്ത്രണം നിലവിൽ വരുമെന്ന് മന്ത്രി പി തിലോത്തമൻ തിരുവനന്തപുരത്ത് പറഞ്ഞു